എറ്റവും വലിയ കാലവർഷക്കെടുതിക്കാണ് കേരളം സാക്ഷൃംവഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

തുടക്കമായി മേഖ്ല്യിലെ സഹകരണത്തിന് സമ്മേളനം ആക്കം കൂട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കൈവരിക്കുമെന്ന് ആർ ബി ഐ യുടെ വാർഷിക റിപ്പോർട്ട്

മെഡൽതേടി ഇന്ത്യ ഇന്നിറങ്ങും

കാലവർഷക്കെടുതി പ്രളയദുരന്തസ്ഥിതി തുടങ്ങിയവയെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോടെയാണ് ഒരു ദിവസത്തെ അടിയന്തിര സമ്മേളനം ആരംഭിച്ചത് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും മുഖ്യമന്ത്രി വിശദീകരിച്ചു പുനരധിവാസം സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കും

പ്രളയദുരിതം വിലയിരുത്താനും പുനർനിർമ്മാണ പ്രക്രിയകൾ ചർച്ചു ചെയ്യാനും വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മൺസൂണിന്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ ദുരന്തങ്ങൾ വിതച്ച കാലവർഷം ആഗസ്റ്റ് മാസമായപ്പോഴേക്കും മഹാപ്രളയത്തിലേക്ക് എത്തുകയാണു ായത് ഈ ദുരിതത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

വിദ്യാലയങ്ങളും ആശുപത്രികളും ഗവൺമെന്റ് ഓഫീസുകളും ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളുടെ നഷ്ടം പാരിസ്ഥിതികമായ കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്തിനു ായ നഷ്ടം ഏറെ വലുതാണ് ടൂറിസം മേഖലയ്ക്കും ഇത് തിരിച്ചുടിയായി സംസ്ഥാനത്തെ വാർഷിക പദ്ധതിയേക്കാൾ കൂടിയ തോതിലുള്ള നഷ്ടം ഉ ായതായി പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നതായും ശ്രീ പിണറായി വിജയൻ അറിയിച്ചു പുനർനിർമ്മാണത്തിനൊപ്പം പുതിയ പ്രക്രേള സൃഷ്ടിയ്ക്കുകൂടി ഉതകുന്ന ക്രിയാത്മകമായ ചർച്ച്കൾ ഉയർന്ന് വരണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക സമ്മേളനം വിളിച്ചുചേർത്തത്

സംസ്ഥാനത്ത് കാലവർഷക്കെടുതി ഉ ാകുമെന്നുള്ള സൂചന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ഉ ായപ്പോൾ തന്നെ അതിനെ നേരിടാനുള്ള ക്രിയാത്മകമായ ഇടപെലുകൾ ഗവൺമെന്റ് നടത്തിയിരുന്നു എന്നാൽ പ്രവചിച്ചതിനേക്കാൾ വലിയ കാലവർഷമാണ് ഏതാനും ദിവസങ്ങളിൽ ഉ ായത്

ജീവനോപാധികൾ പൂർണ്ണമായും തകർന്നുപോയി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വ്യാപകമായി വെള്ളത്തിനടിയിലായി

ഉരുൾപൊട്ടലിലും മലയിടിച്ചിലിലും ഭൂമിയുടെ പ്രതലത്തിന്റെ ഘടന തന്നെ മാറിപ്പോയി

സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം മരണസംഖ്യ താരതമ്യേന രക്ഷാപ്രവർത്തകർക്ക് വലിയ സല്യൂട്ട് കുറച്ചു നൽകുന്നതായും മുഖ്യമന്തി നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു ആർമി എയർഫോഴ്സ്നാവികസേനകോസ്റ്ഗാർഡ് എൻ ഡി ആർ എഫ്ബി എസ് എഫ്സി ആർ

എഫ് ഐ ടി ബി

മത്സ്യതൊഴിലാളികളെ രക്ഷാ പ്രവർത്തനത്തിന് നിയോഗിക്കുക എന്ന തീരുമാനവും രക്ഷാ പ്രവർത്തനത്തെ ലക്ഷ്യത്തിലേക്കെത്തിക്കുന്നതിന് പ്രധാന ഘടകമായി

ആർ

ആർ

കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ തുക ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഐക്യത്തോടെ നിന്ന് അതിജീവിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്

നവകേരള നിർമ്മിതിക്കു പ്രതിപക്ഷത്തിന്റെ പൂർണ്ണപിന്തുണ ഉ ാവുമെന്ന് അദ്ദേഹം പറഞ്ഞു പ രാഷ്ട്രീയ പരിഗണന കൂടാതെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും പങ്കാളികളാക്കണമെന്ന് ശ്രീ

അർഹരായവരെ കടെ ത്താൻ തദ്ദേശ വകുപ്പിൻെറ യും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ വാർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സമഗ്ര സർവ്വേ നടത്തുമെന്നും അവർ പറഞ്ഞു

ഉച്ചകോടിക്ക് മുന്നോടിയായി സംഘടനയിലെ എല്ലാ നേതാക്കളുമായും ശ്രീ ന്റരേന്ദ്രമോദി ആശയവിനിമയം നടത്തി ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്നിവരുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്കായി നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ഒരുക്കിയിട്ടുള്ള അത്താഴവിരുന്നിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും

നല്ല മഴകിട്ടിയതും വൃവ്യസായ പുരോഗതിയും മൂലമാണിത്

രാജ്യത്ത് ഒരിടത്തും ഇപ്പോൾ കറൻസിക്ക് ക്ഷാമമില്ലെന്നും ഗവൺമെന്റ് അറിയിച്ചു കള്ളപ്പണം തടയുക ഭീകരർക്കുള്ള ധനസഹായം ചെറുക്കുക

ഗാർഗ് അറിയിച്ചു

ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യനുൾപ്പെട്ട ഇന്ത്യയുടെ ആദ്യ ബാഹ്യബഹിരാകാശ ദൌത്യമായ ഗഗൻയാനിൽ ആയിരിക്കും ഐഎസ്ആർഒ ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക